ത കേന്ദ്രം നിയോഗിച്ച അന്വേഷണ സംഘങ്ങൾ അപകടത്തെപ്പറ്റി ഇന്നു തന്നെ അന്വേഷണം ആരംഭിക്കുമെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഒമ്പത് മണിയോടെ കരിപ്പൂരിലെത്തും

വന്ദേഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി ദുബായിൽ നിന്ന് എത്തിയ വിമാനം ഇന്നലെ രാത്രി എട്ടുമണിയോടെ റൺവേയിൽ നിന്ന് തെന്നിമാറിയായിരുന്നു അപകടം

മോശം കാലാവസ്ഥയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ വിശദാംശങ്ങളുമായി മലപ്പുറം ജില്ലാ പ്രതിനിധി എം സുരേഷ് ബാബു

ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ടെലഫോണിൽ സംസാരിച്ച രാഷ്ട്രപതി ദുരന്തത്തിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞു മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വിമാന ജീവനക്കാരുടെ കുടുംബങ്ങളുടെയും വേദനയിൽ പങ്ക് ചേരുന്നതായി അദ്ദേഹം പറഞ്ഞു അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്ക് ചേരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അപകടത്തിന്റെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം വിലയിരുത്തി ദുരന്തത്തിൽപ്പെട്ടവർക്ക് എല്ലാ സഹായങ്ങളും ഉറപ്പാക്കാൻ ബന്ധപ്പെട്ടവർ രംഗത്തുണ്ടെന്ന് നരേന്ദ്രമോദി അറിയിച്ചു

ദേശീയ ദുരന്ത നിവാരണ സേനയോട് സ്ഥലത്തെത്തി എല്ലാ സഹായങ്ങളും നൽകാനാവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അമിത് ഷാ ട്വിറ്ററിൽ കുറിച്ചു മന്ത്രി കെ കെ ശൈലജയുമായി ടെലിഫോണിൽ സംസാരിച്ച കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ ഹർഷ വർദ്ധൻ പരിക്കേറ്റവരുടെ ചികിത്സയ്ക്ക് എല്ലാ സഹായവും ഉറപ്പ് നൽകി രുമ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സഹമന്ത്രി വി മുരളീധരൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയവരും അനുശോചനം അറിയിച്ചു രുമ കരിപ്പൂരിലെ അപകടത്തെപ്പറ്റി പ്രത്യേക സംഘങ്ങൾ അന്വേഷിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമായതെന്ന് പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു അതോറിറ്റിയുടെയും എയർക്രാഫ്റ്റ് എയർപോർട്ട് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെയും രണ്ട് സംഘങ്ങൾ ഇതിനായി കരിപ്പൂരിൽ എത്തിയിട്ടുണ്ട് രുമ കരിപ്പൂർ വിമാന ദുരന്തം നേരിട്ട് വിലയിരുത്താനും ദുരിതാശ്വാസ നടപടികൾക്കുമായി കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ അല്പം മുമ്പ് കരിപ്പൂരിലെത്തി അപകടം ആശങ്ക ഉയർത്തുന്നതും അതീവ ദുഃഖകരവുമാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു

കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച രണ്ട് അന്വേഷണ സംഘം കരിപ്പൂരിലെത്തിയിട്ടുണ്ടെന്നും അന്വേഷണം ഇന്നുതന്നെ ആരംഭിക്കുമെന്നും കേന്ദ്രസഹമന്ത്രി പറഞ്ഞു രുമ വിമാനാപകടമുണ്ടായ കരിപ്പൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഒമ്പതു മണിയോടെ എത്തിച്ചേരും യാത്ര ഒഴിവാക്കണമെന്ന് ഇന്റലിജൻസ് മേധാവിയടക്കം ആവശ്യപ്പെട്ടെങ്കിലും കരിപ്പൂരിലെത്തണമെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുകയായിരുന്നു അപകടത്തിന് ശേഷം സ്വീകരിക്കേണ്ട നടപടികൾ മുഖ്യമന്ത്രി നേരിട്ട് ഏകോപിപ്പിക്കുകയും അവലോകന യോഗം നടത്തുകയും ചെയ്തേക്കുമെന്ന് റിപ്പോർട്ടുണ്ട് അപകടത്തിൽപെട്ടവർക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ ധനസഹായവും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചേക്കും പരിക്കേറ്റവരെ അദ്ദേഹം ആശുപത്രിയിലെത്തി കാണാനും സാധ്യതയുണ്ട്

സി മൊയ്തീൻ കരിപ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് രുമ അപകടത്തിൽ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ കഴിയുന്നവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം കോഴിക്കോട് ജില്ലാ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകി മരിച്ചവരുടെ ശരീരങ്ങൾ വീടുകളിലെത്തിക്കാൻ നടപടിയെടുക്കണമെന്നും മുഖ്യമന്ത്രി കലക്ടർമാരോട് ആവശ്യപ്പെട്ടു

ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ

ഇടുക്കി രാജമല സംഭവത്തിന്റെ ഞെട്ടൽ മാറും മുമ്പാണ് കരിപ്പൂരിലെ ദുരന്തമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പ്രസ്താവനയിൽ പറഞ്ഞു രുമ വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ട പരിഹാരവും പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവും ഏറ്റെടുക്കാൻ എയർപോർട്ട് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകണമെന്ന് എം കെ രാഘവൻ എം

പ്രധാനമന്ത്രിക്കും വ്യോമയാന മന്ത്രിക്കും ഈ ആവശ്യമുന്നയിച്ച് അദ്ദേഹം ഫാക്സ് സന്ദേശമയച്ചു രേര വിമാനാപകടത്തെത്തുടർന്ന് കരിപ്പൂരിലെത്തേണ്ട വിമാനങ്ങൾ കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറക്കാൻ തീരുമാനിച്ചു കരിപ്പൂർ സാധാരണ നിലയിൽ ആകുന്നതുവരെയാണ് ക്രമീകരണം

വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ

അപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങളുടെ ദുഃഖം പങ്കുവെയ്ക്കുന്നതായി അദ്ദേഹം പറഞ്ഞു പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നതായും രാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു പെട്ടിമുടി ദുരന്തത്തിൽ മന്ത്രി ടി പി രാമകൃഷ്ണനും മന്ത്രി കെ രാജുവും മന്ത്രി എ കെ ബാലനും അനുശോചനമറിയിച്ചു

ദരദ സംസ്ഥാനത്തെ കനത്ത മഴയുടെ സാഹചര്യത്തിൽ ഇന്ന് പാലക്കാട് തൃശൂർ ഇടുക്കി വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എറണാകുളം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട് രാത്രികാലത്ത് മഴ ശക്തിപ്പെടുന്നതിനാൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലയിൽനിന്ന് പകൽ തന്നെ ആളുകളെ ഒഴിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലയോര മേഖലകളിൽ രാത്രി ഗതാഗതം പൂർണ്ണമായി ഒഴിവാക്കാനും നിർദ്ദേശം നൽകി രുമ ശക്തമായ മഴ തുടരുന്ന കോഴിക്കോട് ജില്ലയിൽ ഏഴ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു

സി റോഡിലും കോട്ടയം ഈരാറ്റുപേട്ട റോഡിലും ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിലും വെള്ളം കയറി ഗതാഗതം നിലച്ചു കോട്ടയം കുമളി ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായി രുമ എറണാകുളം ജില്ലയിൽ പെരിയാറിലും മൂവാറ്റുപുഴയാറിലും ജലനിരപ്പ് വെള്ളപ്പൊക്ക രേഖ കവിഞ്ഞു മലങ്കര ഡാം തുറക്കുന്നതോടെ മൂവാറ്റുപുഴയാറിൽ ഒരടി കൂടി ജലനിരപ്പ് ഉയരുമെന്ന് അധിക്വതർ മുന്നറിയിപ്പ് നൽകി